പി നേതാവ് ബി എസ് യെദ്യൂരപ്പ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണയാത്ര ഉച്ചകഴിഞ്ഞ് കാസർകോട് പെർളയിൽ നിന്നാരംഭിക്കും

നെയ്യാറ്റിൻകര സംഭവത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപ ത്രിയിലെത്തിക്കാൻ വീഴ്ച വരുത്തിയ രണ്ട് പൊലീസുകാരെ സസ്പെന്റ് ചെയ്തു

ദേശീയ സുബ്രതോ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഡൽഹി യിൽ ഇന്ന് തുടക്കമാകും കള്ളപ്പണം കണ്ടുപിടിക്കാനും നികുതി വരുമാനം കൂട്ടാനും നോട്ട് നിരോധനം ഗവൺമെന്റിനെ സഹായിച്ചുവെന്ന് കേന്ദ്രധന മന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു സമ്പദ് വ്യവസ്ഥയുടെ ഔദ്യോഗിക വൽക്കരണം നികുതി ദായ കരുടെ എണ്ണത്തിൽ വർധന വരുത്തിയെന്നും ഇത് കേന്ദ്ര സം സ്ഥാന ഗവൺമെന്റുകൾക്ക് ഗുണകരമായെന്നും അദ്ദേഹം പറ ഞ്ഞു

നോട്ട് നിരോധനവും ജി

ടി നടപ്പാക്കിയതും വൻതോ തിൽ പണഇടപാടുകൾ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ ഇടപാടുകൾ വർധിച്ചത് പ്രത്യക്ഷത്തിൽ കാണാനു ണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു

വിഭ വങ്ങൾ ഗവൺമെന്റ് സാമൂഹ്യമേഖലയിലും രാജ്യത്തെ ഗ്രാമങ്ങ ളിലും മെച്ചപ്പെട്ട അടിസ്ഥാന വികസനത്തിനാണ് പ്രയോജനപ്പെ ടുത്തിയതെന്നും ധനമന്ത്രി പറഞ്ഞു

നോട്ട് നിരോധനം കൊണ്ട് രാജ്യത്തിനുണ്ടായ നഷ്ടം ബി

പിയിൽ നിന്ന് ഈടാക്കണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വെള്ളം ചേർക്കാനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി ബിഎസ് യെദ്യൂരപ്പ കാസർകോട്ട് കുറ്റപ്പെടുത്തി ശബ രിമലയിൽ യുവതി പ്രവേശം അനുവദിച്ച സൂപ്രീംകോടതി വിധി ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് റിവ്യൂ ഹർജി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

പി സംസ്ഥാന പ്രസിഡണ്ട് പിഎസ് ശ്രീധരൻപിള്ളയും ബി

എസ് പ്രസിഡണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും നയിക്കുന്ന എൻ

എ യുടെ ശബരിമല സംരക്ഷണ രഥയാത്ര കാസർകോട് മധൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യെദ്യൂരപ്പ എൻഡിഎ യുടെ ശബരിമല സംരക്ഷണ രഥയാത്രക്ക് ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ സ്വീകരണം നൽകും ഇന്നതെ യാത്ര പയ്യന്നൂരിൽ സമാപിക്കും

വിശ്വാസം സംരക്ഷിക്കണമെന്നും വർഗീയതയെ തുരത്തണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ആരംഭിക്കുന്ന അഞ്ച് മേഖലാ ജാഥകളിൽ ആദ്യത്തേത് ഉച്ചയ്ക്ക് ശേഷം കാസർകോട്ട് നിന്ന് തുടങ്ങും കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാസർകോട് പെർളയിൽ മുൻ കെപിസിസി പ്രസിഡന്റ് എം

ഹസൻ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് തൊടുപുഴ ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ ജാഥകൾ പുറപ്പെടും

ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ ഭക്തർക്ക് തെരുവിലിറങ്ങേണ്ട ദുരവസ്ഥ സൃഷ്ടിച്ചവർക്ക് കാലം മാപ്പ് നൽകില്ലെന്ന് കെപിസിസി മുൻ പ്രസിഡന്റ് എം

കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ പ്രചാരണാർഥം കാസർകോട് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ദീപപ്രോജ്ജ്വലനം പെരിയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഹസ്സൻ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യഗ്രഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നവോത്ഥാന ഇടപെടലിലൂടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം അനുവദിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കെ കേളപ്പനും എ

ജി യും പി കൃഷ്ണപ്പിള്ളയും മറ്റും പങ്കെടുത്ത പ്രക്ഷോഭത്ത കോൺഗ്രസ് നേതാക്കൾ അടക്കം പിന്തുണച്ചിരുന്നു ആചാരങ്ങൾ ലംഘിക്ക പ്പെടുമോ എന്ന് അന്ന് ആർക്കും സംശയമുണ്ടായി രുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യഗ്രഹത്തിന്റെ ഓർമക്കായി നിർമിച്ച കെ കേളപ്പൻ സ്മാരകം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

കേളപ്പന്റെ സത്യഗ്രഹ വേദിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു

എസ് ഓഫീസുകളും കരയോഗ മന്ദിരങ്ങളും അക്രമിക്കുന്നത് ആർ

എസും സംഘപരിവാർ സംഘടനക ളുമാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി ശബരിമലയെ സംഘർഷ ഭൂമിയാക്കാതിരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്ന തെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമലയിൽ തീവ്ര വാദ പ്രവർത്തനമാണ് ആർ

എസ് അഴിച്ചുവിട്ടതെന്നും അദ്ദേഹം ആരോപിച്ചു ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താ നാണ് ബി

പി ശ്രമമെന്നും മന്ത്രി പറഞ്ഞു ആചാരം ലംഘിച്ച് ശബരിമലയിൽ പ്രവേശിച്ച കെ പി ശങ്കര ദാസിനെ ദേവസം ബോർഡിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യ പ്പെട്ട് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ശങ്കരദാസ് ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാംപടി കയറിയെന്ന് ആരോപിച്ച് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേ ന്ദ്രനും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡണ്ട് പ്രയാർ ഗോപാലകൃ ഷ്ണനുമാണ് ഹർജി നൽകിയത് നെയ്യാറ്റിൻകരയിൽ യുവാവിനെ ഡി

പി ഹരികുമാർ കാറിന് മുന്നിൽ തള്ളിയിട്ടു കൊലപ്പെടുത്തിയെന്ന കേസ് തിരു വനന്തപുരം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും

ഹരികുമാറിനെതിരെ കൊല പാതകത്തിന് കേസെടുത്തിട്ടുണ്ട് മരിച്ച സനലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വീഴ്ചവരു ത്തിയതിന് നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ രണ്ട് പൊലീസുകാരെ സസ്പെന്റ് ചെയ്തു

നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളജിലേക്ക് വിട്ട സനലിനെ ആദ്യം കൊണ്ടുപോയത് പൊലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന പൊലീസുകാരന് ഡ്യൂട്ടി മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അരമണിക്കൂർ വൈകി ആശു പത്രിയിലെത്തിക്കുമ്പോഴേക്കും സനൽ മരിച്ചിരുന്നു നെയ്യാറ്റിൻകര കൊലപാതക കേസ് അട്ടിമറിക്കാനാ ണ് ഗവൺമെന്റ് ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ഇതി നാണെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു പ്രതികൾ ആരെന്ന റിയാത്ത കേസുകളിലാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കാറുള്ളതെന്നും ഗവൺമെന്റിന്റെ ഈ നീക്കം അംഗീക രിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊലീസ് പ്രതിയായ കേസ് അട്ടിമറി ക്കാൻ പൊലീസ് തന്നെ ശ്രമിക്കുകയാണ് ഇതിന്റെ പിന്നിൽ സി

എം നേതൃത്വമാണെന്നും പ്രതിപക്ഷനേതാവ് കുറ്റപ്പെടുത്തി

പി ഹരികുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു ഭാരതത്തിന്റെ സംസ് കാരം സംഹാരത്തിന്റെതല്ല സംവാദത്തിന്റെതാണന്നെ് സ്പീക്കർ പി ശ്രീരാമ കൃഷ്ണൻ പറഞ്ഞു ഇന്ന് ചിലർ തയ്യാറാകുന്നത് സംഹാരത്തിനാണ്

വിശ്വാസങ്ങളല്ല ഭരണഘടന യാണ് ഇന്ത്യയെ നിലനിർത്തുന്നതെന്നും സ്പീക്കർ പറഞ്ഞു ബന്ധുനിയമനത്തിൽ മന്ത്രി ഡോ

ടി ജലീലിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് സംസ്ഥാന ന്യൂന പക്ഷ ധനകാരൃ വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രൊഫ

മന്ത്രിയെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്നും അർഹരായവരെ തഴഞ്ഞല്ല അദീ ബിനെ ജനറൽ മാനേജറായി നിയമിച്ചതെന്നും അദ്ദേഹം കോഴി ക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

കെ ശശി എം

എ ക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഡിവൈഎഫ്ഐ വനിതാ നേതാവ് സി

അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നൽകിയ പരാതിയിൽ അവർ ആരോപിച്ചു തന്നെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉന്നതർ ഇടപെട്ട് ശ്രമം നടത്തുന്നുണ്ടെന്നും പികെ ശശി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവുമായി രഹസ്യ ചർച്ച നടത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയു ന്നു ശബ്ദ സന്ദേശം ഉൾപ്പെടെ തെളിവുകളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്

മലപ്പുറം ചേലേമ്പ്രയിലെ നാരായണൻ നായർ ഹയർ സെക്കണ്ടറി സ്കൂൾ ടീമാണ് കേരളത്തിനുവേണ്ടി കളിക്കുന്നത് വൈകീട്ട് നടക്കുന്ന മത്സരത്തിൽ ഉത്താര ഖണ്ഡ് സ്കൂൾ ടീമാണ് എതിരാ ളി

എൽ ഫുട്ബോളിൽ ഗോവ എഫ്

ലണ്ടനിൽ നടന്ന ലോക ട്രാവൽ മാർക്കറ്റിൽ ലോകത്തെ ഏറ്റവും മികച്ച ഉത്തരവാദിത്ത ടൂറിസം വിഭാഗത്തിൽ കേരളടൂറിസം സ്വർണം കരസ്ഥമാക്കി തദ്ദേശീയരായ ജനങ്ങളെ ഉൾപ്പെടുത്തി ടൂറിസം മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങളും മികച്ച നിലയിൽ സംഘ ടിപ്പിച്ചതിന് അംഗീകാരമായാണ് പൂരസ്കാരം

ദീപാവലി ബോണസ് നൽകിയില്ലെന്നാരോപിച്ചാണ് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസിലെ ജീവനക്കാർ സമരം തുടങ്ങിയത്

സ്ഥിതി നേരിടാൻ എയർ ഇന്ത്യ സ്ഥിരം ജീവനക്കാരെ രംഗത്തിറക്കി സമരം നട ത്തുന്നവരുമായി ചർച്ച നടത്തിവരികയാണെന്ന് എയർ ഇന്ത്യ അധികൃതർ മുംബൈയിൽ അറിയിച്ചു ഇന്ധനവില വീണ്ടും കുറഞ്ഞു

കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് അണുബാധയുണ്ടായ കെ

സി സി വർക്കിംഗ് പ്രസിഡണ്ടും വയ നാട് എം പി യുമായ എം ഐ ഷാനവാസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ യിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്